ഏത് ഏറ്റുമുട്ടലിനും ഇന്ത്യൻ വ്യോമസേന തയ്യാറാണെന്ന് ന് എയർ ചീഫ് മാർഷൽ ആർ കെ എസ് ബദൌരിയ റാഫേൽ യുദ്ധവിമാനങ്ങൾ സേനയുടെ ശക്തി വർധിപ്പിച്ചതായും വ്യോമസേനാ മേധാവി

വൈദ്യശാസ്ത്ര നൊബേൽ മൂന്നുപേർ പങ്കിട്ടു പുരസ്കാരം ഹെപ്പറ്റൈറ്റിസ് സി വൈറസിനെ കണ്ടെത്തിയതിന്

ഡിജിറ്റൽ അടിസ്ഥാന സൌകര്യ വികസനം പ്രോത്സാഹിപ്പിക്കാൻ ദേശീയ വിദ്യാഭ്യാസ സാങ്കേതിക ഫോറം രൂപീകരിക്കും നിർമ്മിതബുദ്ധിയുടെ ശരിയായ ഉപയോഗം കൂട്ടായ ഉത്തരവാദിത്തമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു

ഇപ്പോൾ അവർ പ്രോജക്ടുകൾ നിർമ്മിക്കുകയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു സാമൂഹൃ ശാക്തീകരണത്തിന് ഉത്തരവാദിത്ത നിർമിത ബുദ്ധി എന്ന ആശയം ആസ്പദമാക്കി കേന്ദ്ര ഇലക്ട്രോണിക്സ് ഐ

നമ്മൾ ഇ ആശുപത്രികളും ഇ മാർക്കറ്റുകളും ആരംഭിക്കുമെന്ന് പ്രിപാടിയിൽ പങ്കെടുത്ത കേന്ദ്രമന്ത്രി രവിശങ്കർ പ്രസാദ് പറഞ്ഞു നിതി ആയോഗ് സിഇഒ അമിതാഭ് കന്ത് മുകേഷ് അംബാനി തുടങ്ങിയവരും വിർച്ചിൽ പരിപാടിയിൽ പങ്കെടുത്തു വിദ്യാഭ്യാസം ആരോഗ്യ സംരക്ഷണം കൃഷി സ്മാർട്ട് മൊബിലിറ്റി തുടങ്ങിയ മേഖലകളിലെ സാമൂഹിക പരിവർത്തനത്തിനും ശാക്തീകരണത്തിനും നിർമിതബുദ്ധി ഉപയോഗപ്പെടുത്തുന്നത് സംബന്ധിച്ച ആശയ കൈമാറ്റത്തിന് ഉച്ചകോടി വഴിയൊരുക്കും

ഇതുവരെ ശേഖരിച്ച ഇരുപതിനായിരം കോടി രൂപ ഇന്ന് രാത്രി തന്നെ വിതരണം ചെയ്യുമെന്ന് യോഗത്തിനുശേഷം നടന്ന വാർത്താസമ്മേളനത്തിൽ ശ്രീമതി നിർമ്മലാ സീതാരാമൻ അറിയിച്ചു

ലഡാക്കിലെ തന്ത്രപ്രധാനമായ മേഖലകളിലെല്ലാം സേനയെ വിനൃസിച്ചിട്ടുണ്ടെന്ന് വ്യോമസേനാ മേധാവി ആർ

എതിരാളികളെ വിലകുറച്ചു കാണുന്നതിൽ അർത്ഥമില്ലെന്നും ഇന്ത്യൻ വ്യോമസേനയുടെ ശേഷി എതിരാളികളെ അത്ഭുതപ്പെടുത്തിയതായും അദ്ദേഹം പറഞ്ഞു യുദ്ധം ഉൾപ്പെടെ ഏതു സാഹചര്യത്തെയും നേരിടാൻ വ്യോമസേനാ സജ്ജമാണെന്ന് വ്യോമസേനാ മേധാവി അറിയിച്ചു

മീസൈലിന്റെ ഉയരപരിധി പരമാവധി ദൂരം കൃതൃസമയത്തുള്ള ടോർപിഡോയുടെ വിക്ഷേപണം തുടങ്ങിയ് പരീക്ഷണ ലക്ഷ്യങ്ങളെല്ലാം തന്നെ ഇന്ന് നേടാനായി

എഫ് ജവാന്മാർക്ക് വീരമൃത്യു മൂന്ന് ജവാന്മാർക്ക് പരിക്കേറ്റു റോഡ് പരിശോധന ഡ്യൂട്ടിലുണ്ടായിരുന്ന സി ആർ

തെക്കൻ കാഷ്മീരിലെ പുൽവാമ ജില്ലയിൽ പാംപോർ ബൈപാസിന് സമീപത്ത് ഉച്ചുയോടെയാണ് ആക്രമണമുണ്ടായത്

വിഷയത്തിൽ കേന്ദ്ര നിർദ്ദേശത്തോടുള്ള നിലപാട് അറിയിക്കാൻ ഇന്ത്യൻ ബാങ്ക്സ് അസോസിയേഷനോട് സുപ്പീംക്കോടതി ആവശ്യപ്പെട്ടു

ഇ അഡ്വാൻസ് പരീക്ഷകളുടെ ഫലം ഐ

ഗാംഗുല ഭുവൻ റെഡ്ഡി വൈഭവ് രാജ് എന്നിവർ യഥാക്രമം രണ്ട് മൂന്ന് സ്ഥാനങ്ങൾ കരസ്ഥമാക്കി പെൺകുട്ടികളിൽ കനിഷ്ക മിത്തൽ ആണ് മുന്നിൽ

വന്യജീവി വാരാഘോഷത്തിന്റെ ഭാഗമായി കുട്ടികളുമായി സംവദിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി

കേരളത്തിൽ സ്ഥിതി ഗൌരവതരമാണെന്നും ശ്രദ്ധ പാളിയാൽ കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്നും മന്ത്രി കെ

കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ എൻ

ജയചന്ദ്രൻ

ശാരീരിക സാമൂഹിക അകലം പാലിച്ച് പഠനം നടത്തുന്നതിനും ആരോഗ്യം വൃത്തി സുരക്ഷാ എന്നിവ ഉറപ്പാക്കുന്നതിനും ഉള്ള പ്രവർത്തന മാതൃക സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ് തയ്യാറാക്കേണ്ടത്

പത്ത് ലക്ഷത്തി നാല്പത്തിരണ്ടായിരത്തോളം ആളുകൾ രോഗം ബാധിച്ച് മരിച്ചു

ഹെപ്പറ്റൈറ്റിസ് സി വൈറസ് കണ്ടെത്തിയ അമേരിക്കൻ ശാസ്ത്രജ്ഞൻമാരായ ഹാർവി ആൾട്ടർ മൈക്കിൾ ഹൌട്ടൺ ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞനായ ചാൾസ് എം

ഉഷ കൊച്ചിയിൽ അന്തരിച്ചു